ഫോനി ചുഴലിക്കാറ്റ് നാശം വിതച്ച ഒഡീഷയിൽ പ്രധാനമന്ത്രി സന്ദർശനം നടത്തി

എൽ ക്രിക്കറ്റിൽ ഇനി പ്ലേ ഓഫ് മൽസരങ്ങൾ

അമേഠി റായ്ബറേലി ലക്നൌ ഫത്തേപൂർ ഫൈസാബാദ് സിതാപൂർ ഉൾപ്പെടെ നിർണായക മണ്ഡലങ്ങളിലാണ് എന്ന് വിധിയെഴുത്ത് നടക്കുന്നത്

ജമ്മുകാശ്മീരിലെ അനന്ത്നാഗ് മണ്ഡലത്തിലെ ലഡാക്ക് പുൽവാമ ഷോപ്പിയാൻ എന്നിവിടങ്ങളിലും ഇന്നാണ് വോട്ടെടുപ്പ് കേന്ദ്രമന്ത്രിമാരായ രാജ്നാഥ്സിംഗ് ലക്നൌവിലും രാജ്യൂവർദ്ധൻസിംഗ് റാത്തോഡ് ജയ്പൂരിലും വോട്ട് രേഖപ്പെടുത്തി സ്മൂതി ഇറാനി അർജ്ജുൻ റാം മേഘാൾ ജയന്ത് സിംഹ കോൺഗ്ഗസ് നേതാക്കളായ രാഹുൽ ഗാന്ധി സോണിയാഗാന്ധി ഡ്ജിതിൻ പ്രസാദ് എന്നിവരാണ് ഈ ഘട്ടത്തിൽ ജനവിധിത്യേട്ടുന്ന് പ്രമുഖർ ഏഴ് മണിക്കാരംഭിച്ച വോട്ടെടുപ്പ് വൈകുന്നേര് ആറ് മണിയോടെ അവസാനിക്കും

രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി രാഷ്ട്രീയ പാർട്ടികളുടെ ഉന്നത നേതാക്കൾ പൊതുസമ്മേളനങ്ങളും റോഡ് ഷോകളും സംഘടിപ്പിക്കുന്നുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പശ്ചിമബംഗാളിലെ തംലുക് ഝാർഗ്രാം ഝാർഖണ്ഡിലെ ചയ്ബസാ എന്നിവിടങ്ങളിൽ പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്യും ബി ജെ പി അധ്യക്ഷൻ അമിത്ഷാ ബീഹാറിലെ ഈസ്റ്റ് ചമ്പാരൻ ജില്ലയിലാണ് പ്രചാരണം നടത്തുന്നത് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി ഹരിയാനയിലെ ഭിവാനിയിലും ബി എസ് പി നേതാവ് മായാവതി ഉത്തർ പ്രദേശിലെ ബസ്തി ബൽറാംപൂർ എന്നിവിടങ്ങളിലും പൊതു സമ്മേളനങ്ങളിൽ പങ്കെടുക്കും

രാജ്യത്തിന്റെ ഭാവി നിർണയിക്കുന്നതിനും ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നുതിനുമുള്ള മികച്ച വഴിയാണ് തെരഞ്ഞെടുപ്പെന്ന് പ്രധാനമന്ത്രിക്ട്രിറ്റ് സന്ദേശത്തിലൂടെ അറിയിച്ചു യുവജനങ്ങൾ ധാരാളമായി ഇന്ന് പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു

കോഴിക്കോട് കാപ്പാട് മാസപ്പിറവി ദൃശ്യമായതിനാൽ റംസാൻ വ്രതം ആരംഭിച്ചതായി വിവിധ ഖാസിമാർ അറിയിച്ചു ഒമാൻ ഒഴികെയുള്ള ഗൾഫ് രാജ്യങ്ങളിലും ഇന്നാണ് റംസാൻ ഒന്ന് തമിഴ്നാട്ടിലും ഡൽഹിയിലും നാളെയാണ് വ്രതാരംഭം ഖുർ ആൻ അവതരിപ്പിക്കപ്പെട്ട മാസമായ റംസാനിൽ വിശ്വാസികൾ പുലർച്ചെ മുതൽ സന്ധ്യ വരെ അന്നപാനീയങ്ങൾ ഒഴിഞ്ഞ് വ്രതം അനുഷ്ഠിക്കും

രാവിലെ ഏഴ് മണിക്ക് ആരംഭിക്കേണ്ട പോളിംഗ് അഞ്ച് മണിയാക്കണം എന്ന ആവശ്യം പരിശോധിക്കാൻ സുപ്രീംകോടതി കമ്മീഷനോട് ആവശ്യപ്പെട്ടിരുന്നു

പഴയ യു

ആറിൽ ്യനിന്നും ഇന്ത്യ കരസ്ഥമാക്കിയ വേല വിഭാഗത്തിൽപ്പെട്ട പഴയ മുൻ ്ടിരി അന്തർവാഹിനിയുടെ സ്മരണയിൽ ഈ അന്തർവാഹിനിക്കും വേല എന്നാണ് നാമകരണം ചെയ്തിരിക്കുന്നത് പദ്ധത്ിയിൻകീഴിലെ നാല് അന്തർവാഹിനികൾ ഉടൻ നാവികസേനയുടെ പ്രവർത്തനങ്ങൾക്ക് സജ്ജമാകും പ്രതിരോധ നിർമ്മാണ സെക്രട്ടറി ഡോ അജയകുമാർ ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു

രജിസ്റ്റർ ചെയ്യാൻ സി ബി ഐയ്ക്ക് നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജിയിൽ ക്രമമനുസരിച്ച് വാദം കേൾക്കുമെന്ന് സുപ്രീംകോടതി അറിയിച്ചു ജസ്റ്റിസുമാരായ എസ്

ബോബ്ഡേ എസ് അബ്ദുൾ നസീർ എന്നിവരടങ്ങിയ ബെഞ്ചിന്റെ പരിഗണനയിലുള്ള കേസ് അടിയന്തരമായി പരിഗണിക്കണമെന്ന് നേരത്തെ ആവശ്യം ഉയർന്നിരുന്നു കേസിൽ ബുധനാഴ്ച വാദം കേൾക്കണമെന്ന് ആദ്യം ആവശ്യപ്പെട്ട ഹർജിക്കാരൻ കേസ് അടിയന്തരമായി പിന്നീട് പരിഗണിക്കേണ്ടതില്ലെന്ന് കോടതിയെ അറിയിക്കുകയായിരുന്നു

സംസ്ഥാനത്ത് ഈ വർഷത്തെ എസ് എസ് എൽ

നാലുലക്ഷത്തി മുപ്പത്തയ്യായിരത്തിൽപരം വിദ്യാർത്ഥികളും കുടുംബാംഗങ്ങളുമാണ് ആകാംഷയോടെ ഫലം കാത്തിരിക്കുന്നത്

സി എന്നീ പരീക്ഷകളുടെ ഫലപ്പ്ഖ്യാപനവും ഉണ്ടായിരിക്കുന്നതാണ്

നാശനഷ്ടങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിൽ കണ്ട് വിലയിരുത്തി

തലസ്ഥാനമായ ഭുവനേശ്വറിൽ എത്തിയ പ്രധാനമന്ത്രി ചുഴലിക്കാറ്റ് നാശം വിതച്ച പുരി ഖുർദ കട്ടക് ജഗദ്സിങ്പുർ ജാജ്പൂർ കേന്ദ്രപാറ ഭദ്രക് ബാലസോർ എന്നീ ജില്ലകളിൽ ആകാശനിരീക്ഷണം നടത്തി ഒഡീഷ മുഖ്യമന്ത്രി നവീൻ പട്നായക് പ്രധാനമന്ത്രിയെ അനുഗമിച്ചു തുടർന്ന് സംസ്ഥാന ഗവൺമെന്റ് ഉദ്യോഗസ്ഥരുമായി അദ്ദേഹം സ്ഥിതിഗതികൾ ചർച്ച ചെയ്തു

ദുരിതബാധിതർക്കായുള്ള അവശ്യവസ്തുക്കൾ ഭുവനേശ്വർ മുൻസിപ്പൽ കോർപ്പറേഷൻ ഇന്ന് മുതൽ വിതരണം ചെയ്യും

ഒഡീഷ പശ്ചിമബംഗാൾ ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിലെ ദുരന്തബാധിത പ്രദേശങ്ങളിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ക്യാബിനറ്റ് സെക്രട്ടറി പി

സിൻഹയുടെ നേതൃത്വത്തിലുള്ള ദേശീയ ക്രൈസിസ് മാനേജ്മെന്റ് കമ്മറ്റി ഇന്നലെ വിലയിരുത്തിയിരുന്നു

ഇന്നലെ രാത്രി നെഗമ്പോയിലുണ്ടായ സംഘർഷാവസ്ഥയെ തുടർന്നാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നത്

നിയന്ത്രണവിധേയമായതിനെതുടർന്ന് ഇന്ന് രാവിലെ നിരോധനാജ്ഞ പിൻവലിച്ചു

ഈസ്റ്റർ ദിനത്തിൽ ഉണ്ടായ ആക്രമണങ്ങളെ തുടർന്ന് രാജ്യത്ത് അശാന്തി നിലനിന്നിരുന്നു ജനങ്ങൾ ശാന്തരാകണമെന്നും വിദ്ദേഷവും തെറ്റായ വാർത്തകളും പടർത്തരുതെന്നും ആർച്ച് ബിഷപ്പ് മാൽക്കം രഞ്ജിത്ത് ജനങ്ങളോട് അഭ്യർത്ഥിച്ചു ഭീകരാക്രമണങ്ങൾക്ക് ശേഷം ആദ്യമായി ഇന്ന് സെക്കന്ററി സ്കൂളുകൾ തുറന്നു പ്രവർത്തിക്കുകയാണ് സുരക്ഷ സംവിധാനങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട്

പഞ്ചനക്ഷത്ര ഹോട്ടലുകളിലും പള്ളികളിലുമായി നടന്നു

മരിച്ചവരിൽ രണ്ട് കൂട്ടികളും ഉൾപ്പെടുന്നുവെന്ന് വാർത്താ ഏജൻസി ഇന്റർഫാക്സ് റിപ്പോർട്ട് ചെയ്യുന്നു

ഇവരിൽ അഞ്ച് പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് സംഭവത്തെക്കുറിച്ച് വിശദമായി അന്വേഷിക്കാൻ പ്രസിഡന്റ് വ്ളാഡിമർ പുടിൻ ഉത്തരവിട്ടു

ഇറാനിൽ നിന്നും നിരവധി തവണ മുന്നറിയിപ്പ് ലഭിച്ചതിനെ തുടർന്നാണ് തീരുമാനമെന്ന് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജോൺ ബോൾട്ടൺ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു

എൽ ക്രിക്കറ്റിൽ മുംബൈ ഇന്ത്യൻസ് ചെന്നൈ സൂപ്പർ കിംഗ്സ് ഡൽഹി ക്യാപിറ്റൽസ് സൺറൈസസ് ഹൈദ്രാബാദ് എന്നീ നാല് ടീമുകൾ പ്പേ ഓഫ് യോഗൃത് ദ്നേടി

ചെന്നൈ ഡൽഹി ഹൈദ്രാബാദ് എന്നിവർ രണ്ടും മൂന്നും നാലും സ്ഥാനങ്ങളിലാണ്

ചെന്നൈയിലെ എം

ബുധനാഴ്ച വിശാഖപട്ടണത്ത് നടക്കുന്ന മത്സരത്തിൽ ഡൽഹി ഹൈദ്രാബാദിനെ നേരിടും ഞായറാഴ്ച ഹൈദ്രാബാദിലാണ് ഐ

എല്ലിലെ ഫൈനൽ മത്സരം

എ മാർക്കെതിരെയുള്ള എ

എം

എ മാരായ വി

രത്തിന സബാപതി എന്നിവർ നൽകിയ ഹർജിയിലും ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ ബഞ്ച് നോട്ടീസ് അയച്ചിരുന്നു